ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഗവൺമെന്റ് ശരിയായ നടപടിയാണ് സ്പീകരിച്ചതെന്ന് മന്ത്രി ഇ പി ജയരാജൻ പ്രളയക്കെടുതി വിലയിരുത്താൻ കേന്ദ്രസംഘം കണ്ണൂർ പാലക്കാട് കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ സന്ദർശനം തുടരുന്നു ഗോൾഡൻ ഗ്ലോബ് പായ് വഞ്ചി പ്രയാണത്തിൽ പങ്കെടുക്കുന്നതിനിടെ മലയാളി നാവികൻ കമാണ്ടർ അഭിലാഷ് ടോമിക്ക് പരിക്കേറ്റു രാജ്യത്തെ ആദ്യ വിവാഹപൂർവ്വ കൌൺസിലിംഗ് പദ്ധതി സംസ്ഥാനത്ത് തുടങ്ങി ൾ ൽ ൾ കന്യാസ്ത്രീ പീഡനകേസിൽ അറസ്റ്റിലായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും പാലാ ഒന്നാം ക്ലാസ് ജുഡ്യീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ബിഷപ്പിനെ ഹാജരാക്കുന്നത് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിട്ടുകിട്ടണമെന്ന പൊലീസിന്റെ ഹർജിയും ബിഷപ്പിന്റെ ജാമ്യാപേക്ഷയും ഇതേ കോടതി തന്നെ പരിഗണിച്ചേക്കും ഇന്ന് രാവിലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വിട്ടയച്ച ബിഷപ്പ് മുളയ്ക്കലിനെ പൊലീസ് ക്ലബ്ബിലേക്കാണ് കൊണ്ടുപോയത് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തെ വീണ്ടും വൈദ്യ്പരിശോധനയക്ക് വിധേയമാക്കും ഇന്നലെ കൊച്ചിയിൽ നിന്ന് കോട്ടയത്തേക്ക് കൊണ്ടുപോകുന്നതിനിടെ നെഞ്ച് വേദന ്അനുഭവപ്പെടുന്നതായി അറിയിച്ചതിനെ തുടർന്ന് ബിഷപ്പിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു തീവ്രപരിചരണ വിഭാഗത്തിൽ ആറ് മണിക്കൂറിലേറെ നിരീക്ഷണത്തിന് വിധേയമാക്കിയ ശേഷം ഇന്ന് രാവിലെ വീണ്ടും ഡോക്ടർമാരുടെ സംഘം ബിഷപ്പിനെ പരിശോധിച്ചു ആരോഗൃപ്രശ്നങ്ങൾ ഇല്ലെന്ന് ഉറപ്പാക്കിയശേഷമാ യിരുന്നു ഡിസ്ചാർജ് ൾ ൽ ൾ കന്യാസ്ത്രീ ലൈംഗിക പീഡനകേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഗവൺമെന്റ് ശരിയായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു എല്ലാ തെളിവുകളും ലഭിച്ചതിന് ശേഷമാണ് ബിഷപ്പിനെ അറസ്റ്റ് ചെയ്തത്

വേട്ടക്കാരനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അതാണ് ഇപ്പോൾ നടന്നതെന്നും മന്ത്രി കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ൾ ൽ ൾ ബിഷപ്പ് ഫ്രാങ്കോക്കെതിരായ പരാതി നൽകിയ ശേഷം കന്യാസ്ത്രീകൾ സമരരംഗത്ത് ഇറങ്ങിയില്ലാ യിരുന്നെങ്കിലും ഗവൺമെന്റ് ശക്തമായ നടപടി സ്വീകരിക്കുമായിരുന്നുവെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പറഞ്ഞു കന്യാസ്ത്രീകളുടെ സമരത്തിനെതിരെ സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ സംസാരിച്ചു എന്ന ആരോപണം ശരിയല്ലെന്നും സമരത്തെ ചിലർ ദൂരുദ്ദേശത്തോടെ ഉപയോഗിക്കുന്നുവെന്ന കാര്യമാണ് അദ്ദേഹം വൃക്തമാക്കിയതെന്നും ബേബി തിരുവനന്ത പുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു പി കെ ശശി എം എൽ എ യ്ക്കെതിരായ ഡി വൈ എഫ് വൈ വനിതാ നേതാവിന്റെ പരാതിയിൽ പാർട്ടി ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും എം

നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്നും തെറ്റു ചെയ്തവർ ശിക്ഷിക്കപ്പെടണ മെന്നും മുല്ലപ്പള്ളി പറഞ്ഞു ൾ ൽ ൾ ബിഷപ്പിന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ട് സമരം നടത്തിയ കന്യാസ്ത്രീക ൾക്ക് ബി ജെ പി പിന്തുണ നൽകിയെന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവന തെറ്റാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡണ്ട് പി എസ് ശ്രീധരൻപിള്ള തിരുവനന്തപുരത്ത് പറഞ്ഞു ഇത്ത്രത്തിൽ പാർട്ടി ആർക്കും പിന്തുണ നൽകിയിട്ടില്ല മറിച്ചുള്ള ആരോപണം തെറ്റാണെന്ന് ശ്രീധരൻ പിള്ള പറഞ്ഞു ൾ ൽ ൾ കന്യാസ്ത്രീ പീഡനകേസിൽ ബിഷപ്പ് ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നടത്തിയ സമരം വിജയിപ്പിച്ചതിൽ എല്ലാവരോടും നന്ദിയുണ്ടെന്ന് സിസ്റ്റർ അനുപമ പറഞ്ഞു ഇതിന്റെ പേരിൽ സഭയുടെ ഭാഗത്ത് നിന്നും എന്ത് നട്ടപ്ടി വന്നാലും നേരിടുമെന്നും അവർ കുറുവിലങ്ങാട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ൾ ൽ ൾ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്തതിൽ സന്തോഷമുണ്ടെന്ന് പരാതിക്കാരിയായ കന്യാസ്ത്രീയുടെ കുടുംബം മാധ്യമങ്ങളോട് പറഞ്ഞു

സഭ നീതി നിഷേധിച്ചതിലാണ് തെരുവിൽ ഇറങ്ങേണ്ടിവന്നതെന്നും കന്യാസ്ത്രീയുടെ കുടുംബം വ്യക്തമാക്കി ൾ ൽ ൽ പ്രളയക്കെടുതി വിലയിരുത്താൻ സംസ്ഥാനത്തെത്തിയ കേന്ദ്ര സംഘം കണ്ണൂർ പാലക്കാട് കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ സന്ദർശനം നടത്തുന്നു

തിങ്കളാഴ്ച സംഘം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണ റായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തും ൾ ൽ ൾ മഴക്കെടുതി വിലയിരുത്താൻ കേന്ദ്രസംഘം പാലക്കാട് ജില്ലയിൽ സന്ദർശനം തുടങ്ങി ജില്ലാ കലക്ടറുമായി ചർച്ച നടത്തിയ ശേഷം നെല്ലിയാമ്പതിയിലാണ് സംഘം ആദ്യം സന്ദർശനം നടത്തിയത് ശംഖുവാരത്തോട് കുമാരസ്ഥാമി സുന്ദരംകോളനി കരടിയോട് കോട്ടോപ്പാടം മണ്ണാർക്കാട് എന്നിവിടങ്ങളിലെ സന്ദർശനശേഷം സംഘം ദ്ദ മലപ്പുറത്തേയ്ക്ക് തിരിക്കും ൾ ൽ ൾ കാലവർഷക്കെടുതിയിൽ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതായി കേന്ദ്ര സംഘം കണ്ണൂരിൽ എത്തി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറി എവി ധർമറെഡ്ഢി ഗ്രാമവികസന മന്ത്രാലയം ഡയറക്ടർ ധരംവീർ ജ എന്നിവിടങ്ങു സംഘമാമണ് കണ്ണൂരിൽ എത്തിയത് ഇരിട്ടി തളിപ്പറമ്പ് താലൂക്കുകളിൽ പെട്ട പയ്യാവൂർ വയത്തൂർ അയ്യൻകുന്ന് കൊട്ടിയൂർ അമ്പായത്തോട് എന്നീ പ്രദേങ്ങൾ സംഘം സന്ദർശിക്കും

ൾ ൽ ൾ കേരളത്തിലെ പ്രളയ നഷ്ടത്തെക്കുറിച്ച് ലോകബാങ്ക് എ ഡി ബി സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും റിപ്പോർട്ടിന്റെ അടി സ്ഥാനത്തിലായിരിക്കും സംസ്ഥാന ഗവൺമെന്റിന്റെ വായ് പാ അപേക്ഷയിൽ അന്തിമ തീരുമാനം

ൾ ൽ ൾ ഗവൺമെന്റ് ജീവനക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയി ലേക്ക് ഒരു മാസത്തെ ശമ്പളം സംഭാവന ചെയ്യുന്ന സാലറി ചലഞ്ച് നടപ ടിക്രമങ്ങൾ ഇന്ന് പൂർത്തിയാകും ഒരു മാസശമ്പളം സംഭാവന ചെയ്യുന്ന തിൽ വിസമ്മതം അറിയിക്കാത്തവരിൽ നിന്ന് സംഭാവന സ്വീകരിക്കാനാണ് ഗവൺമെന്റ് തീരുമാനം പെൻഷൻകാരിൽ നിന്ന് സംഭാവന വാങ്ങുന്നതിന് സമ്മതപത്രം വാങ്ങാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഇക്കാര്യത്തിൽ പെൻഷൻകാരുടെ സംഘടനകളുമായി ചർച്ച നടത്തിയ ശേഷം മന്ത്രി ഡോ തോമസ് ഐസക് അന്തിമതീരുമാനം അറിയിക്കും ൾ ൽ ൾ ഒഡീഷ്യയിലെ താൽച്ചർ വളം നിർമ്മാണശാല നവീകരിക്കുന്നതോടെ കൽക്കരിയെ വാതകമാക്കി മാറ്റി വേപ്പെണ്ണ ആവരണത്തോടുകൂടിയ യൂറിയ നിർമ്മാണ ത്തിന് സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു പതിമൂവ്വായിരം കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ് മൂന്ന് വർഷത്തിനകം പുനരുദ്ധാരണ പദ്ധതി പൂർത്തിയാക്കാനാവുമെന്ന് അദ്ദേഹം പറഞ്ഞു പദ്ധതി യാഥാർത്ഥ്യമാവുന്നതോടെ രാസവള പ്രകൃതി വാതക ഇറക്കുമതി വെട്ടികുറ യ്ക്കാനാവും ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയാണ് ഇതിന് പ്രയോജനപ്പെടുത്തുന്നതെന്നും പ്രധാനമന്ത്രി അറിയിച്ചു

വെങ്കയ്യനായിഡു പറഞ്ഞു ഡോക്ടർമാർ ഗ്രാമീണ മേഖലയിൽ കൂടുതൽ സേവനം നടത്താൻ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു

ൾ ൽ ൾ സംസ്ഥാനകെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും പുതിയ കെ പി സി സി ഭാരവാഹികളും ന്യൂഡൽഹി യിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി എ ഐ സി സി ജനറൽ സിക്രട്ടറി മുകൾ വാസ്നിക് ഉൾപ്പെടെ നേതാക്കൾ കൂടിക്കാഴ്ച യിൽ പങ്കെടുത്തു

ൾ ൽ ൾ പായ്വഞ്ചിയിൽ ഗോൾഡൻ ഗ്ലോബ് പ്രയാണത്തിൽ പങ്കെടുക്കുന്നതി നിടെ അപകടത്തിൽ പെട്ട മലയാളി നാവികൻ കമാണ്ടർ അഭിലാഷ് ടോമിയുടെ പായ്വഞ്ചി കണ്ടെ ത്താൻ തിരച്ചിൽ ഉൌർജ്ജിതമാക്കി പായ്ക്കപ്പൽ കണ്ടെത്താൻ നാവികസേനയുടെ ഐ എൻ എസ് സത്പുര കപ്പൽ പുറപ്പെട്ടു

സഞ്ചരിച്ചു പായ്വഞ്ചിയുടെ തൂണ് തകർന്ന് മുതുകിന് പരുക്കേറ്റതായി ഇന്ന് രാവിലെയാണ് അഭിലാഷ്ടോമി യുടെ സന്ദേശം ലഭിച്ചത്

ൾ ൽ ൾ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ കീഴിൽ തുടങ്ങുന്ന വിവാഹപൂർവ്വ കൌൺസിലിംഗ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് മന്ത്രി കെ ടി ജലീൽ നിർവ്വഹിച്ചു

ന്യൂനപക്ഷ വകുപ്പിന് കീഴിലാണെങ്കിലും എല്ലാ വിഭാഗം ജനങ്ങൾക്കും കൌൺസിലിംഗ് സെന്റർ ഉപയോഗപ്പെടുത്താമെന്ന് മന്ത്രി പറഞ്ഞു മദ്റസാ അധ്യാപകർക്ക് ആയി പരിശീലനം കേന്ദ്രം ആരംഭിക്കുന്ന കാര്യം പരിഗണനയിൽ ആണെന്നും മന്ത്രി അറിയിച്ചു എ പ്രദീപ് കുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ൾ ൽ ൾ രാജ്യാന്തര ചലച്ചിത്രമേള ഈ വർഷം നടത്തുന്ന കാര്യം മുഖ്യമന്ത്രി അമേരിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം തീരുമാനിക്കുമെന്ന് മന്ത്രി ഏ

ആർഭാടം കുറച്ച് ചെലവ് ചുരുക്കി മേള നടത്തുന്നതിന്റെ മാർഗ്ഗു രേഖ ചലചിത്ര അക്കാദമി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറിയിട്ടു ണ്ടെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു

ഒന്നാം ദിനത്തിലെ മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ കുമരംപുത്തൂർ കല്പടി സ്ക്കൂളാണ് മുന്നിൽ ചാമ്പ്യൻഷിപ്പ് നാളെ സമാപിക്കും

വി

അരയിടത്ത്പാലം മുതൽ കളിപ്പൊയ്ക വരെയുള്ള ഭാഗത്ത് റസിഡൻസ് അസോസിയേഷനുകൾ സന്ന്ദ്ധസംഘടനകൾ തുടങ്ങിയവയുടെ നേതൃത്വത്തിലാണ് ശുചീകരണം നടത്തുക